സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും

പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന കേരള ജനതയ്ക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഐക്യദാർഡ്യം

കർണ്ണാടകത്തിൽ കൂടക് ജില്ലയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ആറ് പ്പേർ മരിച്ചു

മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ചിതാഭസ്മ നിമജ്ജന യാത്രാചടങ്ങ് പുരോഗമിക്കുന്നു ഗംഗാനദിയിൽ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിമജ്ജനം ചെയ്യും

മിക്ക നദികളിലേയും ജലവിധാനത്തിലും ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് സ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് വിവിധ ഡാമുകളിലെ ഷട്ടറുകൾ അടച്ചു

പ്രളയ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാ പ്രവർത്തനം തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ

മഴക്കെടുതികളിൽപ്പെട്ട് ഒറ്റപ്പെട്ട് പ്പോഴ്ചവരെ ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള ശ്രമം യുദ്ധകാലാടിസ്ഥിന്റെത്തിൽ തുടരുകയാണ്

മൂന്ന് ടീമുകൾ കൂടി ഉടൻ കേരളത്തിൽ എത്തും

ദുരിതാശ്വാസ കൃാമ്പുകളിലും രക്ഷാപ്രവർത്തകർക്കും മൊബൈൽ ഫോൺ ചാർജ്ജ് ചെയ്യുന്നതിന് അനെർട്ട് സഞ്ചരിക്കുന്ന സോളാർ മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ചികിത്സ ഒരുക്കുന്നതിനായി ചെങ്ങന്നൂരും മാന്നാറും തിരവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും രണ്ട് മെഡിക്കൽ ടീം എത്തും

ദേശീയ പാത എം സി റോഡ് തുടങ്ങി പ്രധാന പാതകളിലെ സർവ്വീസുകൾ കെ എസ്

ടി സി പുനരാരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുമായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സംസ്ഥാനത്തെ പ്രളയ കെടുതികൾ ചർച്ച ചെയ്തു

ചന്ദ്രശേഖരൻ ആകാശവാണിയോട് പറഞ്ഞു

മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളോടും ഇന്ത്യൻ ജനതയോടും സൌദ്യ അറേബ്യൻ ഗവൺമെന്റിന്റെ അനുശോചനം അറിയിക്കുന്നുവെന്ന് സൌദി പ്രസ് ഏജൻസി വ്യക്തമാക്കി

നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷംരൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി പരമേശ്വർ ട്ടിറ്ററിൽ കുറിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തെ മഴമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ കർണാടക മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി നേരത്തെ വ്യോമ നിരീക്ഷണം നടത്തി കുടക് ജില്ലയ്ക്കിൽ ഗവൺമെന്റ് രണ്ടരലക്ഷം ലിറ്റർ കുടിവെള്ളം ലഭ്യമാക്കിയിരാീയും വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ നടപടികൾ സിഴ്കരിച്ചതായും ശ്രീ

ദുരിതം നേരിട്ട ജില്ലകളിൽ ദുരന്തനിവാരണ സേന ൃഢ്യിശ്മന സേന മറ്റ് സൈനിക അംഗങ്ങൾ എന്നിവരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ ഗംഗാനദിയിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യും

ജെ പി പ്രസിഡന്റ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് ന്ഗിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിംഗ് റാവത്ത് വാജ്പേയിയുടെ കുടുംബാംഗങ്ങൾ സന്യാസിമാർ മതനേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു

ജെ

കൂടാതെ സംസ്ഥാനതല സ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പഞ്ചായത്ത് തലത്തിലും പ്രാർത്ഥനാ യോഗം നടക്കും

യോഗൃത റൌണ്ടിൽ രണ്ടാം സ്ഥാനം നേടിയാണ് ഇവർക്ക് ഫൈനലിൽ എത്തിയത്

ഫൈനലിൽ ഇവർക്ക് ആറാമതേ ഫിനിഷ് ചെയ്യാനായുള്ളൂ വനിതകളുട്ടു ്യാപ്പ് ഇനത്തിൽ ശ്രേയസി സിംഗും സീമാ തോമറും ഇന്ന് ഇറ്റങ്ങുർ നീന്തലിൽ സജൻ പ്രകാശും ശ്രീഹരി നടരാജും ഫൈനലിലെത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരമാണ് ഫൈനൽ

ഫൈനലിൽ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് രണ്ടാം പകുതിയിൽ സുനിത മുണ്ടയുടെ സ്ട്രൈക്കുകളാണ് ഇന്ത്യയെ കിരീടമണിയിച്ചത്

ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം എഡിഷനാണ് ഇത്

യുക്രൈൻസിറിയ ഇറാൻ പൈപ്പ് ലൈൻ പദ്ധതിയെക്കുറിച്ച് ബർലിന് പുറത്ത് വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു ഐക്യരാഷ്റടസഭ സുരക്ഷാ കൌൺസിലിലെ സ്ഥിരം അംഗമെന്ന നിലയിൽ പ്രശ്നം പരിഹരിക്കാൻ ബാധൃസ്ഥരാണെന്ന് ജർമ്മനി റഷ്യയെ അറിയിച്ചു

പുതിയ മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞചെയ്യും

ഷാ മുഹമ്മദ് ഖുറേഷിയാണ് പ്രുതിയ പ്രതിരോധ മന്ത്രി

ഷേയ്ക്ക് റാഷിദിനാണ് റെയിൽമയുടെ ചുമതല

ഖാൻ പാട്ടിയുടെ പ്രസിഡന്റ് സ്ഥാക്ടൂർത്ഥിയായി ഡോ ആരീഫ് അൽവിയെ പ്രഖ്യാപിച്ചു

തീർത്ഥാടനത്തിനായി എത്തിയ ലോക എമ്പാടുമുള്ള മുസ്തീം ജനത ഇന്ന് സൌദി അറേബൃയിലെ വിശുദ്ധ നഗരമായ മെക്കയിൽ നിന്ന് മിനായിലേക്ക് യാത്ര തിരിക്കും